തെരഞ്ഞെടുപ്പ് നാളെ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രിധ്യാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിൽ തെര്യ്ണ്ടുപ്പ് റാലികളെ പ്രധാനമന്ത്രി അഭിസംബോധന ച്ചെയ്തു

പൂർത്തിയായി

കേരളത്തിലെ പുതിയ ജലവിഭവ മന്ത്രിയായി കെ

ഷാജിയെ അയോഗ്യനാക്കിയ നടപടിക്ക് സുപ്രീംകോടതി സ്റ്റേ

ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം

അതിനിടെ രാജസ്ഥാനിലും തെലങ്കാനയിലും നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിലേയ്ക്ക് കടന്നു

കൂടുതൽ വിവരങ്ങളുമായി വീണ

മിസോറാമിൽ കോൺഗ്രസ് ബി ജെ പി മിസോ നാഷണൽ ഫ്രണ്ട് എൻ പി എം എന്നീ പാർട്ടികൾ തമ്മിലാണ് പ്രധാന മത്സരം

രാജസ്ഥാനിൽ പ്രധാന ്ലാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്തെത്തിി വിവിധ റാലികളിൽ പങ്കെടുക്കുന്നു

തെലങ്കാനയിൽ ടി

എസും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തെലങ്കാനയിൽ ടി

എസ് ഗവൺമെന്റ് വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല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

ന്യൂഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പതിനാലാമത് സ്ഥാപക വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കുൽഗാം ജില്ലയിലെ റഡ്വാനി മേഖലയിലുണ്ടായ ഏറ്റ്ട്രൂമുട്ടലിൽ രണ്ട് ഭീകരരാണ് കൊല്ലപ്പെട്ടത്

ത്രാൽ മേഖലയിൽ ഭീകരരും സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടലിലാണ് മറ്റൊരു ഭീകരൻ കൊല്ലപ്പെട്ടത്

എസ്

എസ് എൽ

ഭൂമിയുടെ ഉപരിതല്പ്തിന്റെ സമഗ്രമായ പഠനമാണ് ഐ എസ് ആർ

ഇന്ത്യയുമായി അതുല്യവും ശക്തവും സൌഹൃദപരവുമായ ബന്ധമാണ് മാലിദ്വീപിന് ഉളളത് മാലിദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുളള ഷഹീദുമായുളള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതിനുശേഷം മാത്രമേ വ്യക്തമായ അഭ്യീപ്പായം പറയാനാകൂ കർണ്ണാടകയിലെ മെക്കേഡതുവിൽ കാറ്റ്പ്രിന്ദിയിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേന്ദ്ര ജലവിഭവ മ്മ്ന്താലയം അനുമതി നൽകിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു

ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഒരുതവണ മാത്രമേ കിരീടം നേടിയിട്ടുളളൂ

എല്ലാ ലോകകപ്പിലും മത്സരിച്ച ടീമാണ്ട് ക്ക് ഇന്ത്യ

പരിചയസമ്പന്നരും പുതുതലമുറയും ഒന്നിക്കുന്ന് ഇന്ത്യൻ ടീമിനെ മൻപ്രീത് സിങ് നയിക്കും